ബുറെവി ചുഴലിക്കാറ്റ് ന് ദുർബലമാകുന്നു കേരളത്തിൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു

രോഗബാധിതരുടെ എണ്ണത്തിലും കുറവ്

പാൻ ഐ ഐ ടി

എസ്എ സംഘടിപ്പിച്ച ആഗോള ഉച്ചകോടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം എല്ലാ മേഖലയിലും പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണ്

ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി നിരക്കുകളിലൊന്ന് ഇന്ത്യയിലാണ് കോവിഡിന്റെ കാലത്തു പോലും ഇന്ത്യക്ക് റെക്കോർഡ് നിക്ഷേപം ആകർഷിക്കാനായെന്നും ഈ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ശാസ്ത്ര സാങ്കേതിക മേഖലയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്

താങ്ങുവില്പ് തുടരുമെന്നും അത് ഇല്ലാതാകുമെന്ന് കർഷകർ ഭ്യപ്പെടേണ്ടതില്ലെന്നും കർഷക സംഘടനകൾക്ക് ശ്രീ

മൂന്ന് കാർഷിക നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് ക്ടർഷക സംഘടനകൾ ഉന്നയിച്ച സംശയങ്ങൾക്കും സർക്കാർ നേരത്തെ വിശദീകരണം നൽകിയിരുന്നു ഇന്നത്തെ ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിങ്ങും ആഭ്യന്തര മന്ത്രി അമിത് ഷായും കൂടിക്കാഴ്ച നടത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രതിരോധ മേഖലയിലെ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വ്യവസായ മേഖലയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു സായുധ സേനാ പതാകദിനത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിമുക്ത ഭടൻമാരുടെയും വീരമൃത്യു വരിച്ച സൈനികരുടെ ബന്ധുക്കളുടെയും ക്ഷേമം നമ്മുടെ എല്ലാവരുടെയും കർത്തവൃമാണെന്നും അദ്ദേഹം ഓർമിപ്പിച്ചു

ഐ വിലയിരുത്തി

ജെ

ഐ

വില കുറഞ്ഞതും ഫലപ്രദവുമായ കോവിഡ് വാക്സിനു വേണ്ടി ലോകം ഇന്ത്യയെ ഉറ്റു നോക്കുകയാണെന്നും സർവ്വകക്ഷിയോഗത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് വികസിപ്പിച്ചു വരുന്ന എട്ട് വാക്സിനുകൾ പരീക്ഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് വാക്സിൻ നൽകുന്നതിന്റെ മുൻഗണനാ ക്രമം സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

മനുഷ്യത്തിന്റെ നന്മയും ഏറ്റവും മോശമായ വശവും കോവിഡ് കാലം നമുക്ക് കാണിച്ചു തന്നു സഹാനുഭൂതിയും നിസ്വാർഥതയും നിറഞ്ഞ പ്രചോദനപരമ്മൂയ പ്രവർത്തികളും ഗവേഷണങ്ങളുടേയും പുത്തൻ ആവിഷ്കാരങ്ങളുടേയും അദ്ഭുതാവഹമായ നേട്ടങ്ങളും ക്ക്യേഷിഡ് കാലത്തുണ്ടായി

കോവിഡ് കാലത്തുണ്ടായ പ്രതിസസ്തിക്കുളെ അതിജീവിച്ച് ലോകത്തിന് മുന്നോട്ട് പോകണമെന്നും ക്ടെട്രോസ് അദനോം പറഞ്ഞു

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അശുതോഷ് അഗ്നിഹോത്രിയാണ് എട്ട് അംഗ സംഘത്തെ നയിക്കുന്നത് കൃഷി ദേശീയപാത ധനകാര്യം വൈദ്യുതി ഗ്രാമവികസനം മത്സ്യബന്ധനം ജലവിഭവം എന്നീ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ സംഘത്തിലുണ്ട് നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്ന സംഘം കേന്ദ്രസർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും

ഇന്നലെ പകൽ അതിതീവ്ര ന്യൂനമർദവും രാത്രിയോടെ തീവ്ര ന്യൂനമർദവുമായി മാറിയ ബുറെവി മാന്നാർ കടലിടുക്കിൽ തന്നെ തുടരുകയാണ് തമിഴ്നാടിന്റെ തെക്കൻ തീരത്ത് ശക്തമായ മഴ തുടരുകയാണ്

ഇന്നും മഴ തുടരും ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു

പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഗ്ര മെട്രോയുടെ രണ്ട് ഇടനാഴികൾ പൂർത്തീകരിക്കുന്നതിന് ഉത്തർപ്രദേശ് മെട്രോ റെയിൽ കോർപ്പറേഷൻ അഞ്ച് വർഷത്തെ സമയപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് താജ്മഹൽ കാണാനെത്തുന്ന ലോകമെമ്പാടുമുള്ള വിനോദ സഞ്ചാരികൾക്ക് ഹരിത ഗതാഗതത്തിന്റെ പുതിയ അനുഭവം ആഗ്ര മെട്രോയിലൂടെ ലഭിക്കും

ഹോസ്റ്റൽ സൌകര്യങ്ങൾ ലീഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ മാതാപിതാക്കളിൽ നീന്ന് സമ്മതപത്രം സമർപ്പിക്കണമെന്ന് വിജ്ഞാപന്ത്തിൽ പറയുന്നു